ആദ്യം രോഗം സ്ഥിരീകരിച്ച വിദ്യാർത്ഥിനിയുടെ രണ്ടാമത്തെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും

പൂനൈയിൽ നിന്നാണ് പരിശോധനയ്ക്കുള്ള യന്തങ്ങൾ എത്തിയത് പരിശോധനാ ഫലം ഒറ്റദിവസം കൊണ്ട് ലഭിക്കും പൂനൈയിൽ അയച്ച് ഫലം ലഭിക്കാൻ മൂന്നു ദിവസം വരെ സമയമെടുത്തിരുന്നു

വുഹാനിൽ നിന്നും ഡൽഹിയിൽ എത്തിച്ച മലയാളി വിദ്യാർത്ഥികൾക്ക് അസൌകര്യങ്ങളുണ്ടെന്ന് അവർ മാതാപിതാക്കളെ അറിയിച്ചിട്ടുണ്ട്

കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി വിഷയം സംസാരിച്ചിട്ടുണ്ടെന്നും ചൈനയിൽ നിന്നെത്തിയവർക്ക് ചികിത്സാ സൌകര്യങ്ങളും എല്ലാ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ